ത ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്

ഡാം തുറക്കും മുമ്പ് കേരളത്തെ അറിയിക്കുമെന്ന് തമിഴ്നാട്

വാർത്തകൾ വിശദമായി കാലവർഷം കനത്തോടെ സംസ്ഥാനത്ത് കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അപകട മേഖലകളിൽ കഴിയുന്നവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി

കുമരകം തിരുവാർപ്പ് ഐമനം ആർപ്പൂക്കര വൈക്കം മേഖലകളിൽ പ്രളയം രൂക്ഷമാണ്

നിലമ്പൂർ വയനാട് അതിർത്തി വനമേഖലയിലെ മൂപ്പൈയ്നാട് പരപ്പൻപാറ കോളനിക്കാരെ ഉരുൾപൊട്ടൽ ഭീഷണിയെത്തുടർന്ന് മാറ്റി പാർപ്പിച്ചു

മലവെള്ളപ്പാച്ചിലിൽ പുന്നപ്പുഴ ഗതി മാറി ഒഴുകി ആറംപുളിക്കൽ കടവ് ചെക്ക് ഡാം കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡ് തകർന്നു

ചുരം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്നാണിത് ചുരത്തിലെ ഗതാഗതം നിരോധിച്ചു

ഇന്നലെ ഉച്ചയോടെ പമ്പ ഡാം തുറന്നതോടെ റാന്നിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരെ മാറ്റി പാർപ്പിച്ചു

ഇന്നലെ പുതുതായി ഒൻപത് ക്യാമ്പുകൾ തുറന്നു

കൊച്ചി നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറിയ നിലയിലാണ്

കോവിഡ് ക്വാറന്റൈനിൽ കഴിയുന്നവർക്കായി മൂന്ന് പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കി ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു

ദേദ മൂന്നാർ രാജമല പെട്ടിമുടിയിൽ നാലാം ദിവസമായ ഇന്നും തെരച്ചിൽ തുടരും

കൂടുതൽ വിവരങ്ങളുമായി ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്

കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു

ജലനിരപ്പ് ഉയർന്നതിനെത്തുടർന്ന് പെരിയാർ തീര വാസികളെ മാറ്റിപാർപ്പിക്കാൻ നടപടി തുടങ്ങി ഡാമിലെ നീരൊഴുക്കിന്റെ ശക്തി കുറവാണ് നേരിയ തോതിലാണ് ജലനിരപ്പ് ഉയരുന്നത് ഡാം തുറക്കുന്നതിനു രണ്ടു മണിക്കൂർ മുമ്പ് കേരളത്തെ അറിയിക്കുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്

രുമ മൂന്നാറിലെ പെട്ടിമുടി ദുരന്തതോട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിഷേധ സമീപനം അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

കേന്ദ്രസഹമന്ത്രിയും പ്രതിപക്ഷ നേതാവും ദുരന്ത ഭൂമിയിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി നേരിട്ട് ഇടപെട്ടിട്ടും അവിടെ പോവാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് മജീദ് കോഴിക്കോട്ട് പറഞ്ഞു കരിപ്പൂരിലെയും പെട്ടിമുടിയിലെയും ദുരന്തങ്ങളിൽപ്പെട്ടവർക്ക് ഒരേ തോതിൽ സഹായം നൽകി വിവേചനം അവസാനിപ്പിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു

മറ്റ് ജില്ലകളിലും ഏറെപേരും സമ്പർക്കത്തിലൂടെ രോഗം ഉണ്ടായവരാണ്

ദേദ കോവിഡ് ക്ളസ്റ്റർ രൂപപ്പെട്ട സാഹചര്യത്തിൽ പട്ടാമ്പി നഗരസഭയിലും മുതുതല കൊപ്പം നാഗലശ്ശേരി ഓങ്ങല്ലൂർ തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലും തിരുവേഗപ്പുറ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒരാഴ്ചകൂടി തുടരുമെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചു നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്ന മറ്റ് പഞ്ചായത്തുകളെ കണ്ടെയ്മെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി

ഇതിൽ ആറുപേർ വലിയങ്ങാടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും എട്ടുപേർ നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്ക പട്ടികയിൽ പെട്ടവരുമാണ്

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദ്യാർത്ഥികളുടെ ദുരിതം കേന്ദ്രത്തെ ധരിപ്പിച്ചതിനെത്തുടർന്നാണ് വന്ദേഭാരത് മിഷനിൽ ഇവർക്ക് മടങ്ങിയെത്താൻ അവസരമൊരുങ്ങിയത് രേര ചെന്നൈ നഗരത്തെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും ബന്ധിപ്പിക്കുന്ന ദേശീയ സമുദ്രാന്തര ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും ആൻഡമാൻ നിക്കോബാറിലെ ഏഴ് ദ്വീപുകൾക്കിടയിലെ മൊബൈൽ ലാൻഡ്ലൈൻ ശൃംഖലയിലെ വാർത്താ വിനിമയ ബന്ധങ്ങൾക്കും ഇതോടെ വേഗവും വ്യക്തതയും ലഭിക്കും വീഡിയോ കോൺഫറൻസ് വഴിയായിരിക്കും ഉദ്ഘാടന ചടങ്ങ് രുര കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം മിനി സിവിൽ സ്റ്റേഷൻ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരിക്കും രണ്ട് ഘട്ടങ്ങളായി മിനി സിവിൽ സ്റ്റേഷൻ പൂർത്തീകരിച്ചതോടെ വിവിധ സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഓഫീസുകൾ ഒരേ സമുച്ചയത്തിലാവും രുമ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒരു മാസം കൂടി നീട്ടണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി

അപേക്ഷാ സമർപ്പണത്തിന്റെ നടപടിക്രമങ്ങൾ ലളിതമാക്കണമെന്നും പ്രതികൂല കാലാവസ്ഥയും കോവിഡ് സാഹചര്യവും മൂലം ഇപ്പോഴത്തെ സമയ പരിധി അപര്യാപ്തമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു